യോഗം ഇന്ന്

കാലയളവിൽ പലിശ ഒഴിവ്വാക്കണം എന്ന ഹർജിയിൽ സുപ്രീംകോടതി കേന്ദ്ര സൂർക്കാരിന്റെ അഭിപ്രായം തേടി

ഈവർഷത്തെ ബുക്കർ പുരസ്ക്കാരം പ്രഖ്യാപിച്ചു

വരുമാനക്കുറവ് നേരിടുന്ന സംസ്ഥാനങ്ങൾക്കുള്ള ജി എസ് ടി നഷ്ട പരിഹാരത്തുക സംബന്ധിച്ച തീരുമാനമാണ് ഇന്നത്തെ കൌൺസിലിന്റെ സുപ്രധാന അജ്ജിട്ട് വിഷയത്തിൽ പൊതു സമീപനം സ്വീകരിക്കാനായി പ്രിപ്തിപക്ഷ കക്ഷികൾ ഇന്നലെ യോഗം ചേർന്നിരുന്നു

എന്നാൽ വായ്പ തിരിച്ചടക്കാൻ ബുദ്ധിമുട്ടുള്ള അക്കൌണ്ടുകൾ കണ്ടെത്തി പലിശ നിരക്ക് കുറയ്ക്കുന്നത് ഉൾപ്പെടെയുള്ള ആശ്വാസ നടപടികൾ സ്വീകരിക്കുമെന്ന് കേന്ദ്ര സർക്കാരിനു വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കോടതിയിൽ വ്യക്തമാക്കി

പരിശോധന കിറ്റുകൾ രാജ്യത്തുതന്നെ ഉല്പാദിപ്പിക്കുന്നതിലൂടെ ചെലവും ഗണ്യമായി കുറഞ്ഞതായി ഐ സി എം ആർ അറിയിച്ചു

നിലവിൽ ഏഴ് ലക്ഷത്തിലേറെ പേരാണ് ചികിത്സയിലുള്ളത്

കഴിഞ്ഞ ഏതാനും ദിവസ്മങ്ങളിൽ ഡൽഹിയിൽ കോവിഡ് രോഗികൾ നേരിയ ത്തോതിൽ വർധിച്ചതായും ശ്രീ കേജ്രിവാൾ മാധ്യമങ്ങളോട് പറഞ്ഞു

ബിരുദ തല വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ ക്ലാസുകൾ ആരംഭിക്കുമെന്നും ഒക്ടോബർ ഒന്നു മതുൽ കലാലയങ്ങളിൽ പഠന ക്ലാസുകൾ തുടങ്ങുമെന്നും കർണാടക ഉപമുഖ്യമന്ത്രി ഡോ സി എൻ

പരീക്ഷകൾ നടത്തുന്നതിനും കോളേജുകൾ വീണ്ടും തുറക്കുന്നതിനുമുള്ള കേന്ദ്ര നിർദ്ദേശങ്ങൾക്കായി കാത്തിരിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി

അസമിൽ ഇൌ വൃർഷിത്ത് പ്രളയക്കെടുതി ഒരു ലക്ഷത്തിലേറെ ജനങ്ങളെ ദു്രിതത്തിലാഴ്ത്തി

വിശദാംശങ്ങളുമായി പ്രിയ സുബ്ബലക്ഷ്മി വോയിസ് പുരാവസ്തു സ്മാരകങ്ങളെ സംരക്ഷിക്കാനും അവയുടെ രജിസ്ട്രേഷൻ നടപടികൾ കൂടുതൽ സുഗമമാക്കാനും ആണ് നടപടിയെന്ന് സാംസ്കാരിക വിനോദ സഞ്ചാര വകുപ്പ് മന്ത്രി പ്രഹ്ലാദ് സിംഗ് പട്ടേൽ വീഡിയോ സന്ദേശത്തിൽ വൃക്തമാക്കി തിരുച്ചിറപ്പള്ളി റായ്ഗഞ്ച് രാജ്കോട്ട് ജബൽപൂർ ഝാൻസി മീററ്റ് എന്നിവയാണ് പുതിയ സർക്കിളുകൾ സാംസ്കാരിക സ്മാരകങ്ങളും പുരാതന പൈതൃക സ്ഥാപനങ്ങളും ഏറെയുള്ള തിരുച്ചിറപ്പള്ളി ഹംപി പോലുള്ള പ്രദേശങ്ങളെ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധാ കേന്ദ്രമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പുതിയ സർക്കിളുകളുടെ പ്രഖ്യാപനമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഗൂജ്എാത്ത് മഹാരാഷ്ട്ര തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളാണ് രൂജ്യത്ത് കയറ്റുമതിയിൽ മുൻപദ്ധതിയിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങൾ കയറ്റുമതിയുമായി ബന്ധപ്പെട്ട മേഖലകളിൽ ഓരോ സംസ്ഥാനവും കൈവരിച്ചു പുരോഗതിയും സൂചികയിലുണ്ട്

ബുക്കർ പുരസ്ക്കാരം നേടുന്ന ഏറ്റവും പ്രായ കുറഞ്ഞ എഴുത്തുകാരനാണ് മരീകെ ലുക്കാസ്

റ്റെഡ് ഹോഡ്ഗ്ക്കിൻസൺ നേതൃത്വത്തിലൂള്ള പുരസ്ക്കാര നിർണ്ണയ സമിതിയാണ് റിനീവെൽഡിനെ പരമോന്നത രാജ്യാന്തര സാഹിത്യ പുരസ്ക്കാരത്തിന് തെരഞ്ഞെടുത്തത് വേദനകൾ നിറഞ്ഞ ബാല്യകാലത്തിന്റെ മൃദുലമായ ദൃശ്യാവിഷ്കാരമാണ് ദി ഡിസ് കംഫർട്ട് ഓഫ് ഇൌവനിംഗ് എന്ന് പുരസ്ക്കാര നിർണയ സമിതി വില്ലയിരുത്തി ന്യൂസ് ഡെസ്ക് ആകാശവാണി

വിവിധ റീജിയണൽ ബെഞ്ചുകളിലായി സായുധ സേനാംഗങ്ങളുടെ നിരവധി പരാതികളും അപേക്ഷകളും തീർപ്പാക്കാനുണ്ട് ജൂൺ എട്ടിനു ശേഷം നേരിട്ടും വാദം കേൾക്കുന്ന ഏക കോടതിയാണ് സായുധ സേനാ ട്രിബ്യൂണൽ സുരക്ഷ പ്രശ്നങ്ങൾ അടക്കം നിരവധി പ്രതിസന്ധികൾ അഭിമുഖീകരിച്ചാണ് ട്രിബ്യൂണൽ ചേർന്നത്